എം അഴീക്കോട് എം

എം ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കി മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നട ത്തണമെന്ന് ഉത്തരവ് വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് കെ എം ഷാജി

ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിടും അഴീക്കോട് എം

എയും മുസ്തീംലീഗ് നേതാവുമായ കെ

എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം

കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ ഷാജി പ്രവർത്തിച്ചുവെന്നും അത് തെര ഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണെന്നും കാണിച്ചായിരുന്നു നികേഷ് ഹൈക്കോടതിയെ സമീപിച്ചത്

ഡി രാജൻ വീണ്ടും തെര ഞ്ഞെടുപ്പ് നടത്താനും ഉത്തരവിട്ടു വിധിയുടെ പശ്ചാത്തലത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോ ടതി നിർദേശം നൽകി

എം ഷാജി തെരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപി ക്കുമെന്ന് കെഎം ഷാജി തൃശൂരിൽ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് തലേന്നും വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന് പരസ്യ മായി പ്രഖ്യാപിച്ച ആളാണ് താനെന്നും മതേതര വാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എക്കാ ലത്തും വർഗീയതക്കെതിരെയാണ് നിലകൊണ്ടത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളാണ് വർഗീയത പ്രചരിപ്പിക്കുന്ന നോട്ടീസ് ഫയലിൽ തിരുകികയറ്റിയതെന്നും നിയമവ്യവസ്ഥയിൽ പ്രതീക്ഷയുണ്ടെന്നും ഷാജി പറഞ്ഞു

എം ഷാജിക്കെതിരായ ഹൈക്കോടതി വിധിയോടെ കേസിൽ അന്തിമതീരുമാനമായെന്ന് പറയാൻ കഴിയില്ലെന്ന് മുസ്തിം ലീഗ് അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറ ഞ്ഞു വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം ഒരു വാർത്താചാനലിനെ അറിയിച്ചു കേസിൽ ഷാജി യുടെ നിരപരാധിത്വം ഹൈക്കോടതിയെ ബോധൃപ്പെടുത്താൻ കഴി ഞ്ഞില്ലെന്നും വിധി പഠിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മതനിരപേക്ഷത ഉയർത്തിപിടിക്കുന്നതാണ് കെ എം ഷാജിയെ അയോഗ്യനാക്കിയ ഹൈക്കോടതി വിധിയെന്ന് സി

മതനിര പേക്ഷത നിരാകരിക്കുന്ന നിലപാടുകൾ മുസ്ലീംലീഗിലെ ചില നേതാക്കളെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം കണ്ണൂ രിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജർ തസ്തികയിൽ നടന്ന നിയമനത്തിൽ വീഴ്ചപ റ്റിയിട്ടില്ലെന്ന് മന്ത്രി ഡോ

ടി ജലീൽ പറഞ്ഞു നിയമന മാന ദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് കൂടുതൽപേർക്ക് അവസരം നൽകാനാണെന്നും മന്ത്രി തലശ്ശേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി കെ

യോഗ്യതയിൽ ഇളവ് നൽകിയത് ന്യൂനപക്ഷ വികസന ധന കാര്യ കോർപ്പറേഷനല്ലെന്ന ചെയർമാന്റെ വെളിപ്പെടുത്തലോടെ നിയമനത്തിൽ മന്ത്രിയുടെ ഇടപെടൽ തെളിഞ്ഞിരിക്കുകയാണ് പ്രശ്നത്തിൽ മന്ത്രിയെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്ന തെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന് മുന്നോടി യായി പ്രസിഡണ്ട് എ പത്മകുമാർ തിരുവനന്തപുരം എ

മുഖ്യമന്ത്രി പിണറായി വിജയൻ സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി

ഡി എ യുടെ ശബരിമല സംരക്ഷണ രഥയാത്ര അൽപ്പ സമയത്തിനകം തലശ്ശേരിയിലെത്തും സ്വീകരണ പരിപാടിക്ക് ശേഷം വയനാട്ടിലേക്ക് പോകുന്ന യാത്രയ്ക്ക് വൈകീട്ട് മാന ന്തവാടി ഗാന്ധിപാർക്കിൽ സ്വീകരണ നൽകും ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വിശ്വാസ സംരക്ഷണ സംഗമം സംഘടിപ്പിക്കു മെന്ന് ശബരിമല കർമ്മ സമിതി കോഴിക്കോട്ട് അറിയിച്ചു മറ്റന്നാൾ വൈകിട്ട് മുതലക്കുളത്ത് നടക്കുന്ന സംഗമത്തിൽ സമിതി സംസ്ഥാന ജനറൽ കൺവീനർ വത്സൻ തില്ലങ്കേരി പങ്കെടുക്കും ശബരിമല പ്രശ്നം എല്ലാ വിഭാഗവുമായി ചർച്ചചെയ്ത് പരിഹരിക്കേണ്ട വിഷയമാണെന്ന് ശശി തരൂർ എം പി പറഞ്ഞു വിഷയത്തിൽ കോൺഗ്രസിന് സ്വതന്ത്ര നിലപാടുണ്ട് ഇക്കാര്യ ത്തിൽ ബി

പി യുടേത് രാഷ്ട്രീയ നാടകമാണെന്നും സന്നിധാ നത്തെ പ്രതിഷേധങ്ങളിലൂടെ ബി

പിയും ആർ

എസും ശബരിമലയുടെ പവിത്രത നശിപ്പിക്കുകയാണെന്നും അദ്ദേഹം തിരുവന്തപുരത്ത് പറഞ്ഞു

ക്ഷേത്രപ്രവേ ശന വിളംബരവും അതിന് മുമ്പും തുടർന്നും നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങളും കോർത്തിണക്കി നൂറിലധികം ചിത്രങ്ങളുടെ പ്രദർശനം വി ജെ ടി ഹാളിൽ നടക്കും ജില്ലാ ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നാളെ മുതൽ മൂന്നുദിവ സങ്ങളിലായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലാതല പരിപാടികൾ നാളെ രാവിലെ ടൌൺഹാളിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പുരാരേഖകളുടെ പ്രദർശനോദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും ജ്ജ് നല്ല മന്സനാകാൻ നോക്ക് എന്ന നാടക ത്തിന്റെ പുനരാവിഷ്കാരം ഉൾപ്പെടെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് കാസർകോട് ജില്ലാതല പരിപാടികൾ നാളെ രാവിലെ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ഇന്ന് വൈകിട്ട് വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്

മന്ത്രി ഡോ

ടി ജലീലിനെതിരെ ഉയർന്ന ബന്ധുനിയമന വിവാദവും പി കെ ശശി എം

എ ക്കെതിരെ യുവതി നൽകിയ പരാതിയും യോഗം ചർച്ച ചെയ്തേക്കും

ആദ്യമത്സരത്തിൽ ഇന്ത്യ ന്യൂസി ലാൻഡിനെ നേരിടും രാത്രി എട്ടരയ്ക്ക് ഗയാനയിലാണ് മത്സരം

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുനൈറ്റഡ് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും

പ്രളയത്തെതുടർന്ന് മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും

സദാശിവം ഉദ്ഘാടനം ചെയ്യും

റേഞ്ച് ഐ

ഫുട്ബോൾ പ്ലെയേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അഖിലകേരള കിഡ്സ് ഫുട്ബോൾ ടൂർണമെന്റ് നാളെ കോഴി ക്കോട്ട് തുടങ്ങും മാങ്കാവ് മിനി സ്റ്റേഡിയത്തിൽ രാവിലെ ഏഴിന് മത്സരം ആരംഭിക്കും കൊച്ചി നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള സ്പൈസ് കോസ്റ്റ് മാരത്തൺ നാളെ നടക്കും മൂന്നുവിഭാഗങ്ങളിലായാണ് മാരത്തൺ സംഘടിപ്പിക്കുന്നത്

കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് തീരു മാനങ്ങളെടുക്കുന്നതിന് മറ്റന്നാൾ സംഘാടക സമിതി രൂപീകരി ക്കും മന്ത്രി ഇ പി ജയരാജന്റെ അധ്യക്ഷതയിലാണ് യോഗം ഉദ്ഘാടനം ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതരും നാട്ടുകാരും റോഷ്നി പദ്ധതിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം നാളെ മുഖ്യ മന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ നിർവഹിക്കും ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകുന്നതിന് ജില്ലാഭരണകൂടം ആവിഷ്ക്കരിച്ച പദ്ധതിയാണ് റോഷ്നി

കോഴിക്കോട്ട് മറ്റന്നാൾ ആരംഭിക്കുന്ന ഡി

എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കേരള ബദൽ രാഷ്ട്രീ യവും സമ്പദ്ശാസ്ത്രവും എന്ന വിഷയത്തിൽ നാളെ സെമിനാർ നടക്കും മുതലക്കുളം മൈതാനത്ത് വൈകിട്ട് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കും പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ ട്രെയിനിന്റെ വേഗം വർധി പ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ പരീക്ഷണ ഓട്ടം നട ത്തി

ചീഫ് എഞ്ചിനീയറും ഡിവിഷണൽ എഞ്ചിനീയറടക്കം മുതിർന്ന റെയിൽവെ ഉദ്യോഗസ്ഥരും യാത്ര യിൽ പങ്കെടുത്തു പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിനു കൊടിയേറി ബുധ നാഴ്ചയാണ് ഒന്നാം തേര് വെള്ളിയാഴ്ച രഥസംഗമം നടക്കും നടിയെ ആക്രമിച്ച കേസിൽ കുറ്റാരോപിതനായ നടൻ ദിലീപ് വിദേശയാത്ര അനുമതി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് കോടതി പരിഗണിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് ദേശീയ നിയമ സർവകലാശാലയായ നുവാൽ ഡിന്റെ കളമ ശ്ശേരി കാമ്പസിൽ നിർമ്മിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലി ടും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ചാൻസലറുമായ ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷത വഹിക്കും ഉത്തരകേരളത്തിലെ മുച്ചിലോട്ട് കാവുകളിൽ കളിയാട്ടങ്ങൾക്ക് തുടക്കമായി കണ്ണൂർ പറശ്ശിനിക്കടവിലെ നമ്പ്രം മുച്ചിലോട്ട് കാവിൽ കളിയാട്ടത്തോടെയാണ് കണ്ണൂർ കാസർകോട് കോഴിക്കോട് ജില്ല കളിലെ നൂറിലേറെവരുന്ന മുച്ചിലോട്ട് കാവുകളിൽ കളിയാട്ടത്തിന് തുടക്കമായത് കണ്ണൂർ ജില്ലാ സ്കൂൾ ശാസ്ത്രമേള തളിപ്പറമ്പിൽ തുടങ്ങി

കണ്ണൂർ ജില്ലയിൽ ഹരിതപെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാ ക്കാൻ ജില്ലാ സാനിറ്റേഷൻ സമിതി തീരുമാനിച്ചു അനധികൃത മായി സ്ഥാപിച്ച പരസ്യബോർഡുകളും ബാനറുകളും മറ്റും നീക്കുന്ന കാര്യത്തിൽ കർശന നടപടിയെടുക്കാനും താഴെത്തട്ടു മുതൽ ബോധവത്കരണം നടത്താനും സമിതി യോഗത്തിൽ തീരു മാനമായി